ബലിതർപ്പണം വീടുകളിലാക്കി പരിമിതപ്പെടുത്തി

ആലുവ സ്വദേശി കുഞ്ഞുവീരാന്റെ മരണം നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മരിച്ച കാസർകോട് ഉപ്പള സ്വദേശിനി നഫീസയ്ക്കും കോവിഡ് ആണെന്ന് സ്ഥിരീകരിച്ചു

ഇന്നലെ ഏഴിടങ്ങളെ ഹോട്ട്സ്പോട്ട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കി

സമ്പർക്ക കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം

നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന വെളിനല്ലൂർ ആലപ്പാട് ഗ്രാമ പഞ്ചായത്തുകളെയും റെഡ് കളർ കോഡഡ് തദ്ദേശ ഭരണ പ്രദേശമായി നിശ്ചയിച്ചിട്ടുണ്ട് കരവാളൂർ പനയം പഞ്ചായത്തുകളിലും നിയന്ത്രണമുണ്ട് കൊല്ലം ജില്ലയിൽ പുതിയ അഞ്ച് പ്രാഥമികതല ചികിത്സാ കേന്ദ്രങ്ങളിൽ ആയിരത്തോളം കിടക്കകൾ സജ്ജമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു ദദദ കോഴിക്കോട് കോർപ്പറേഷനിലെ പൂളക്കടവ് പാറോപ്പടി ഡിവിഷനുകളും ഒളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ പാലാഴി ഈസ്റ്റ് വളയം ഗ്രാമപഞ്ചായത്തിലെ വണ്ണാർകണ്ടി ഈസ്റ്റ് മണിയാല വളയം ടൌൺ എന്നിവയും കണ്ടെയ്മെന്റ് സോണായി പ്രഖ്യാപിച്ചു കോർപ്പറേഷനിലെ മൂന്നാലിങ്കൽ ചക്കുംകടവ് വാർഡുകളെ കണ്ടെയ്മെന്റ്സോണിൽ നിന്നും ഒഴിവാക്കി ദുദ കോഴിക്കോട് ജില്ലയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് വ്യാപനം കൂടുതൽ റിപ്പോർട്ട് ചെയ്ത നാദാപുരം തൂണേരി ഗ്രാമപഞ്ചായത്തുകളിൽ അതീവ ജാഗ്രതപുലർത്തണമെന്ന് ജില്ലാ കലക്ടർ നിർദേശിച്ചു

മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ഡ്രൈവർമാർക്ക് വടകരയിലും കോഴിക്കോട് വലിയങ്ങാടിയിലും കോവിഡ് കെയർ സെന്റർ സൌകര്യമൊരുക്കുമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു

ഫസ്റ്റ്ലൈൻ ചികിത്സാകേന്ദ്രങ്ങൾക്കാവശ്യമായ സാധന സാമഗ്രികൾ ലഭ്യമാക്കാൻ ജില്ലാ കലക്ടർ ജനങ്ങളോട് അഭ്യർഥിച്ചു

ഇരിങ്ങാലക്കുട നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളും മുരിയാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാക്കി

രുഭ കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം മെഡിക്കൽ കോളേജിനെതിരെ വ്യാജ വാർത്തയും ദൃശ്യങ്ങളും നൽകിയ ന്യൂസ് ചാനലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു മറ്റേതോ ആശുപത്രിയിലെ വാർഡിന്റെ ദൃശ്യങ്ങൾ കാണിച്ച് എറണാകുളം മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികൾ ദുരിതമനുഭവിക്കുകയാണെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചാനൽ ശ്രമിച്ചതെന്ന് സൂപ്രണ്ട് കുറ്റപ്പെടുത്തി

രുമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഏഴ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി സംസ്ഥാനങ്ങളിലെ കോവിഡ് പ്രളയ സാഹചര്യങ്ങൾ അദ്ദേഹം വിലയിരുത്തി ബീഹാർ അസം ആന്ധ്ര തെലങ്കാന തമിഴ്നാട് ഹിമാചൽപ്രദേശ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിമാരുമായാണ് പ്രധാനമന്ത്രി ചർച്ച നടത്തിയത്

ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ന്യൂയോർക്ക് ലണ്ടൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്ന് വരുന്ന വിമാനങ്ങളും ഇതിൽ ഉൾപ്പെടും

കൊടുങ്ങല്ലൂർ മൂന്നുപീടിക സ്വദേശിയായ ഇയാളെ മൂന്നുദിവസം മുമ്പുതന്നെ ദുബായ് പൊലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നാണ് സൂചന എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ഇന്ത്യ ആവശ്യപ്പെട്ടാൽ പ്രതിയെ ഉടൻ കൈമാറിയേക്കും

എ ഇയുടെ ഔദ്യോഗിക മുദ്രകളും രേഖകളും വ്യാജമായി നിർമ്മിച്ച് തിരുവനന്തപുരത്തെ കോൺസുലേറ്റ് അറ്റാഷെയുടെ പേരിൽ നയതന്ത്ര ബാഗേജ് എന്ന് തെറ്റദ്ധരിപ്പിച്ച് സ്വർണ്ണം അയച്ചത് ഫൈസൽ ഫരീദാണെന്നാണ് നിഗമനം ഇയാളുടെ പാസ്പോർട്ട് ഇന്ത്യ റദ്ദാക്കിയിരുന്നു രുമ സ്വർണ്ണക്കടത്തിനും രാജ്യദ്രോഹത്തിനും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടുനിൽക്കുകയാണെന്ന് ആരോപിച്ച് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ട് ബി ജെ പി നാളെ സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അറിയിച്ചു രുമ ഇന്ന് കർക്കിടക വാവ് കർക്കിടക അമാവാസി ദിനത്തിൽ പിത്വക്കൾക്കായി ബലിതർപ്പണം ചെയ്യുന്നത് പതിറ്റാണ്ടുകലായി തുടരുന്ന ആചാരമാണ് എന്നാൽ ഇത്തവണ കോവിഡ് നിയന്ത്രണങ്ങൾമൂലം സമൂഹ ബലിയിടൽ ചടങ്ങുകളും ബലിഘട്ടങ്ങളിലെ ചടങ്ങുകളും തടഞ്ഞിരിക്കുകയാണ് പകരം വ്രതങ്ങളനുഷ്ഠിച്ച് വീടുകളിൽ ബലിതർപ്പണം നടത്താം ഇന്ന് ഉച്ച വരെയാണ് ബലിതർപ്പണ സമയം

കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നികുതി റിട്ടേണുകളിൽ പിശക് സംഭവിച്ചവർക്കും റിട്ടേണുകൾ സമർപ്പിക്കാത്തവർക്കും സഹായമെത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഓഫീസുകളിൽ എത്താതെ ഓൺലൈനിൽ നികുതി ദായകർക്ക് റിട്ടേണുകളിലെ അപാകതകൾ പരിഹരിക്കാൻ കഴിയും

ഇന്നലെ തൃശൂർ കോഴിക്കോട് ആലപ്പുഴ ജില്ലകളിൽ പലയിടത്തും വ്യാപകമായ കടലാക്രമണമുണ്ടായി ശക്തമായ തിരമാലകൾക്ക് സാധ്യത മുൻനിർത്തി ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് ഇടുക്കി പത്തനംതിട്ട കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ദേദ എറണാകുളം ജില്ലയിലെ ചെല്ലാനത്ത് കടലേറ്റത്തിൽ ഒരു വീട് പൂർണ്ണമായും നാല് വീടുകൾ ഭാഗികമായും തകർന്നു

പാണ്ടിക്കുടി റോഡ് പല സ്ഥലങ്ങളിലും കടൽവെള്ളത്തിൽ മുങ്ങി രുമ മലപ്പുറം ജില്ലയിലെ ഏറനാട് താലൂക്ക് തഹസിൽദാർ കെ വി ഗീതക് നിര്യാതനായി

കരൾ രോഗത്തെത്തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സംസ്കാരം ഉച്ചയ്ക്ക് നിലമ്പൂരിലെ വീട്ടുവളപ്പിൽ നടത്തും ദേദ കണ്ണൂർ അഴീക്കലിനടുത്ത് വെള്ളക്കല്ലിൽ ഇന്നലെ രാത്രി ബൈക്ക് അപകടത്തിൽ രണ്ട് പേർ മരിച്ചു വെള്ളക്കൽ സ്വദേശികളായ നിഖിൽ അഭിജിത്ത് എന്നിവരാണ് മരിച്ചത്